സംസ്ഥാന ഗവ ജീവനക്കാരുടെ ഇൻഷൂറൻസ് പദ്ധ തിക്കും അംഗീകാരം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാര്ാണസിയിൽ നാമനിർദേശ പത്രിക സമർപ്പിച്ചു പ കോൺഗ്രസിന് ബിജെപിയുമായി ബന്ധമുണ്ടെന്ന് തെളിയി ച്ചാൽ പൊതുരുംഗം വിടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൃശൂർപൂരം നടത്തിപ്പിന് ഗ്രീൻപ്രോട്ടോകോൾ പാലിക്കാൻ തീരുമാനം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ മുംബൈയെ നേരി ടും സംസ്ഥാനത്ത് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു മാസ ത്തേക്ക് സൌജന്യ റേഷൻ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാ നിച്ചു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പദ്ധതി നടപ്പാ ക്കാൻ അനുമതിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും

ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷൂറൻസ് പദ്ധതിക്കായി റിലയൻസിന് കരാർ നൽകാനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറഞ്ഞ ധനകാര്യ ടെൻഡർ സമർപ്പിച്ചത് റിലയൻസായതിനാൽ അവർക്ക് കരാർ നൽകണമെന്ന ധനകാര്യ വകുപ്പിന്റെ ശുപാർശ മന്ത്രിസഭ അംഗീ കരിക്കുകയായിരുന്നു

ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് നാശം പ്രിത്യക്കാൻ സാധ്യത യുണ്ട് ചൊവ്വാഴ്ച്ചയോടെ തമിഴ്നാട് തീര്ത്തെത്തുന്ന ശക്തമായ ന്യൂനമർദം കാരണം കേരളത്തിലും കർണാട്ടക തീരത്തും ശക്ത മായ മഴ ഉണ്ടായേക്കും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കേരള ത്തിൽ പലയിടത്തും ശക്തമായ മഴയ്കുണ്ടാകുമെന്നാണ് സൂചന എറണാകുളം ഇടുക്കി തൃശൂർ മല്പ്പുറം ജില്ലകളിൽ തിങ്കളാഴ്ച്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മത്സ്യ ത്തൊഴിലാളികൾ ഇന്നുമുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമ ധ്യരേഖാ പ്രദ്ദേശത്തും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്ക്ടലിലും തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആഴക്കടലിലുള്ളവർ മറ്റന്നാളോടെ തീരങ്ങളിൽ തിരിച്ചെത്തണമെന്നും നിർദേശം നൽകി യിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ള തിനാൽ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദേ ശിച്ചു ഉരുൾപ്പൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടാകാൻ സാധ്യതയു ണ്ടെന്ന് ജോഗ്രഫിക്കൽ സർവേ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമ സിക്കുന്നവർക്ക് മറ്റന്നാൾ വൈകീട്ട് മുതൽ സാഹചര്യം അനുസ രിച്ച് ക്യാമ്പുകൾ ഒരുക്കാനും നിർദേശിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പത്തനംതിട്ട കോട്ട യം വയനാട് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഉരുൾപ്പൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രി ഏഴു മുതൽ രാവിലെ ഏഴു വരെ മലയോര മേഖലയിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും അതോറിറ്റി അറിയിച്ചു ഇന്നലെ വൈകീട്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖല യിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും മരം വീണ് നിരവധി വീടു കൾക്കും വാഹനങ്ങൾക്കും കേടുപാട് പറ്റി മുക്കം നീലേശ്വരത്ത് ആറ് വീടുകൾക്കും ഓമശേരിയിൽ പത്ത് വീടുകൾക്കും കേടുപാ ടുകൾ സംഭവിച്ചു കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി വൈദ്യുതി ബന്ധവും തകരാറിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡല ത്തിൽ ഇന്ന് നാമനിർദേശ പത്രിക്ട സ്മർപ്പിച്ചു വാരാണസി കല ക്ട്രേറ്റിലാണ് മോദി പത്രിക സമർപ്പിച്ചത് ബിജെപി ദേശീയ അധ്യ ക്ഷൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്ത്രമന്ത്രി രാജ്നാഥ് സിംഗ് ജെഡിയു നേതാവ് നിതീഷ്കുമാർ ശിരോമ്ണി അകാലിദൾ നേതാവ് പ്രകാ ശ്സിംഗ് ബാദൽ ല്വോക്ജനശക്തി നേതാവ് രാംവിലാസ് പാസ്വാൻ തുടങ്ങി എൻഡിഎ് നേതാക്കളോടൊപ്പമെത്തിയാണ് മോദി പത്രിക സമർപ്പിച്ചത് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്നലെ വാരാണസിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു

സ്വതന്ത്രവുവും സുതാര്യവുമായി തെര ഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് കമ്മീഷൻ സിനിമയ്ക്ക് പ്രദർശനാ നുമതി നിഷേധിച്ചത് തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നത് വരെ സിനിമ റിലീസ് ചെയ്യരുതെന്ന് സുപ്രീംകോടതി നിർദേശിച്ചു കോൺഗ്രസിന് ബിജെപിയുമായി ബന്ധമുണ്ടെന്ന് തെളിയി ച്ചാൽ പൊതുരംഗം വിടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്താനാണ് എൽഡിഎഫ് ശ്രമിച്ചതെന്നും മുല്ല പ്പള്ളി കോഴിക്കോട്ട് ആരോപിച്ചു ബാങ്കുകളുടെ വാർഷികപരിശോധനാ റിപ്പോർട്ട് നിയമ പ്രകാരം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി റിസർവ്വ്ബാങ്കിന് നിർദ്ദേശം നൽകി കിട്ടാക്കടം വരുത്തുന്നവരുടെ പേരു വിവരം വിവരാവകാശ നിയമപ്രകാരം നൽകാതിരിക്കുന്നത് ഗുരുതരമായി കാണണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു

ജസ്റ്റിസ് അറു മുഖസ്വാമി കമ്മീഷന്റെ അന്വേഷണത്തിനെതിരെ അപ്പോളോ ഹോസ്പിറ്റൽ നൽകിയ ഹർജി പ്രിഗ്നണിച്ചാണ് സുപ്രീംകോടതി നടപടി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തി ലുളള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്

കൊളംബോയിൽ ഹോട്ടലിൽ നടന്ന സ്ഫോടനത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന മാധ്യമങ്ങളെ അറി യിച്ചു അതിനിടെ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആറുപേരുടെ ചിത്രങ്ങൾ ശ്രീലങ്കൻ പൊലീസ് പുറത്തുവിട്ടു മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് സംസ്ഥാനത്തെ എസ്എസ്എൽസി പരീക്ഷാഫലം മെയ് ആദ്യ വാരവും പ്തസ് ടു ഫലം രണ്ടാം വാരവും പ്രസിദ്ധീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ട്

ഇത്തവണ മൂന്ന് ഘട്ടങ്ങളിലായാണ് എസ്എസ് എൽസി മൂല്യനിർണയം നടന്നത് പ്തസ് ടു മൂല്യനിർണയം ഏപ്രിൽ ഒന്നിനാണ് തുടങ്ങിയത്

തെറ്റുകാരാരാ യാലും നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന യാത്രാബസ്സുകൾ നിശ്ച യിച്ച വിവിധ നിരക്കുകൾ ഏകീകരിക്കുന്നതിന് നടപടി സ്വീകരി ക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തൃശ്ശൂർ പുരം നടത്തിപ്പിന് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കാൻ തീരുമാനം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ്സ് ഹാളിൽ ചേർന്ന പൂരത്തിന്റെ ജനറൽ കോ ഓഡ്ചിനേഷൻ യോഗത്തിന്റേതാണ് തീരുമാനം ഹരിത കേരള മിഷ്റ്റേയ്ും ശുചിത്വമിഷന്റേയും നേതൃത്വത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഇതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും നിലവിലുളളതിനേക്കാൾ കൂടുതൽ കുടിവെള്ള വിതരണ സംവിധാനങ്ങളൂം പ്രാഥമിക ശുശ്രൂഷാ കേന്ദ്രങ്ങളും ഒരുക്കും എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെയും പാപ്പാൻമാരുടെയും പട്ടിക മുൻകൂട്ടി ്വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥർക്ക് നൽകും ആനകൾക്ക് മ്തിയായ വിശ്രമം നൽകും ഭക്ഷ്യസുരക്ഷാ പരിശോധന് കർശനമാക്കാനും യോഗം തീരുമാനിച്ചു തൃശൂരിലെ തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രൻ എന്ന ആനയെ എഴുന്നള്ളിക്കുന്നതിന് ജില്ലാതല മോണിട്ടറിംഗ് കമ്മറ്റി ഏർപ്പെടുത്തിയ നിരോധനം സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വി

നിരോധനത്തിനെതിരെ ആന ഉടമസ്ഥ സംഘം ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തല ത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം

രാത്രി എട്ടിന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം പതിനൊന്നു രൂപക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം നൽകുന്ന സപ്ലൈക്കോയുടെ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ വഴി വിൽപന നടത്തും അംഗീകൃത കുപ്പിവെള്ള കമ്പനികളിൽ നിന്ന് കരാർ പ്രകാരം കുപ്പിവെള്ളം എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത്

ഒരു സബ്ബ് ഇൻസ്പ്പെക്ട്ടറും അഞ്ച് പൊലീ സുകാരുമടങ്ങുന്ന പ്രത്യേക സ്കാഡും കൺട്രോൾ റൂമൂം ഇതനായി ഒരുക്കിയിട്ടുണ്ട് ഷാഡോ പൊലീസും ലോക്കൽ പൊലീസും കൂടു തൽ പരിശോധനകൾ നടത്തും ജില്ലയിലേക്ക് മയക്കുമരുന്ന് വരു ന്നത് തടയാൻ അതിർത്തി പ്രദ്ദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് കോട്ടയം നാഗമ്പടം പഴയ മേൽപ്പാലം നാളെ പൊളിക്കും

പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പുതി യപാലം നിർമ്മിച്ചതിനെ തുടർന്നാണ് പഴയപാലം പൊളിക്കുന്നത് ഇതേ തുടർന്ന് നാളെ കോട്ടയം വഴിയുളള തീവണ്ടികൾക്ക് നിയ ന്ത്രണം ഏർപ്പെടുത്തി

കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം കോടിക്കൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർഥിയുടെ മൃതദേഹം കണ്ടെത്തി

നൂറ് മീറ്റർ അകലെ കലുങ്കിൽ തട്ടിനിന്ന നിലയിലായിരുന്നു മൃതദേഹം കൊല്ലം ഓച്ചിറ അഴീക്കൽ ബീച്ചിൽ കാണാതായ രണ്ട് യുവാ ക്കൾക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു കോസ്റ്റ് ഗാർഡിന്റെ മുങ്ങൽ വിദഗ്ധരാണ് തെരച്ചിൽ നടത്തുന്നത് കരുനാഗപ്പള്ളി വവ്വാക്കാവ് സ്വദേശികളായ സച്ചിൻ നിധിൻ ബാബു എന്നിവരെയാണ് കാണാ തായത് വയനാട് മാനന്തവാടി തലശ്ശേരി റോഡിൽ കുഴിനിലം പുത്തൻപുരയ്ക്ക് സമീപം കെ എസ് ആർ ടി

മാനന്തവാടിയിൽ നിന്നും ഇരുട്ടിയിലേക്ക് പോകുകയായിരുന്ന ബസും എത്തിർദിശയിലേക്ക് വരികയായിരുന്ന ബസും മുഖാമുഖം കൂട്ടിയിട്ടിക്കുകയായിരുന്നു ആരുടേയും നില ഗുരുതരമല്ല ആരോഗ്യ രക്ഷയ്ക്ക് മാലിന്യ മുക്തു പരിസർം എന്ന ഉദ്ദേശ്യ ത്തോടെ കുട്ടികളെ പങ്കെടുപ്പിച്ച് കണ്ണൂരിൽ അടുത്ത മാസം കൃാമ്പ് നടത്തും ഹരിതകേരളം മിഷൻ കുട്ടുംബശ്രീ കില ശുചിത്വ മിഷൻ ആരോഗ്യ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തി ലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് മാലിന്യത്തിന്റെ അളവ് കുറക്കുകയും പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൂടുതലായി ഉപ യോഗിക്കുകയും ചെയ്യുന്ന ശ്രീലം കുട്ടികളിൽ വളർത്തിയെടുക്കാ നാണ് ക്യാമ്പ് നടത്തുന്നത് ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ബോധ വൽക്കരണ് സെമിനാർ സംഘടിപ്പിച്ചു പകർച്ചവ്യാധി നിയന്ത്രണ ബോധവൽക്കരണ് പ്രദർശനം ഗപ്പി മത്സ്യ നിക്ഷേപം കിണറിന് വലയിടൽ എന്നിവയുമുണ്ടായി